നീക്കം രാജ്യത്തെ വിഭജിക്കാനെന്ന് പ്രതിപക്ഷിനേതാവ് രമേശ് ചെന്നി ത്തല

പ്രമുഖ നേതാക്കൾ മണ്ഡലത്തിലെത്തി

ങ്ങ ൽ ശ് ൽ ശ് ജ ൾ ൾ ൾ ൽ പുതിയ മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ അപാകതകൾ പരിഹരിക്കാൻ കേന്ദ്രഗവർണമെന്റ് അടിയന്തിരമായി ഓർഡിനൻ സ് കൊണ്ടു വരണമെന്ന് മന്ത്രി എ

ബാലൻ പാലക്കാട്ട് ആവ ശ്യപ്പെട്ടു നിയമത്തിനകത്ത് നിന്നല്ലാതെ സംസ്ഥാന ഗവർണ്മെന്റു കൾക്കോ കേന്ദ്രഗവർണ്മെന്റിനോ ഒന്നും ചെയ്യാനാവില്ല ചുരു ങ്ങിയ പിഴയും ശിക്ഷയും മുമ്പത്തേതിന്റെ പത്തിരട്ടിയായതിനാൽ ഇടപെടലുകൾ ഗുണം ചെയ്യുകയുമില്ല ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി പൊതു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു മരട് ഫ്ളാറ്റ് നിവാസികൾക്കായി പറ്റാവുന്നതെല്ലാം ചെയ്യുമെന്നും ഏതു കുടിയൊഴിപ്പിക്കലിനും ഗവർണമെന്റ് എതിരാണെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഹിന്ദി അജണ്ട പുതിയ് സംഘർഷ വേദി തുറക്കുന്നതിന്റെ ലക്ഷണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനാവുക ഹിന്ദിക്കാണെന്ന ധാരണ ശുദ്ധഭോഷ്കാണ് ദക്ഷിണേന്തൃയിലേയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേയും ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നവരല്ല പെറ്റമ്മയെപ്പോലെ മാതൃഭാ ഷയെ സ്നേഹിക്കുന്നു മനുഷ്യന്റെ ഹൃദയ വികാരത്തിന് നേരെ യുള്ള യുദ്ധ പ്രഖ്യാപനമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദി രാഷ്ട്രഭാഷയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദി സംസാരിക്കാ ത്തതു കൊണ്ട് താൻ ഇന്ത്യക്കാരനല്ല എന്ന് ഒരു ഇന്ത്യൻ പൌരനും തോന്നേണ്ട സാഹചര്യമില്ലെന്നും വ്യത്യസ്ത ഭാഷകളെ അംഗീക രിക്കുന്ന രാഷ്ട്രരൂപമാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യവും ജനങ്ങളും നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണിതെന്നും മുഖ്യമന്ത്രി ആരോ പിച്ചു അമിത്ഷായുടെ ഒറ്റഭാഷാ വാദം ഭാഷാ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ച് ഈ നീക്കം അത്യന്തം അപകടക രമാണെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഭാരത സംസ്കാരത്തിന്റെ അടിത്തറയെന്നും ഏതെങ്കിലും ഭാഷ അടിച്ചേൽപ്പിച്ചല്ല രാജ്യത്തെ ഒന്നിപ്പിക്കേണ്ടതെന്നും എ ഐ

രാജ്യത്തെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചു വിടാനുള്ള സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്ന് അദ്ദേഹം ന്യൂഡൽഹി യിൽ പറഞ്ഞു

പ്രശ്നത്തിൽ സിപിഐഎമ്മും കോൺഗ്ര സും ബി

പിയും ഫ്ളാറ്റിലെ താമസക്കാർക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു മരടിലെ അനധികൃത ഫ്ളാറ്റുകളുമായി ഒരു ബന്ധവും ഉത്തരവാ ദിത്തവും ഇല്ലെന്ന് കാണിച്ച് രണ്ട് നിർമ്മാണ കമ്പനികൾ നഗര സഭാ സെക്രട്ടറിക്ക് മറുപടി നൽകി നിർമ്മാണം പൂർത്തിയാക്കി വിറ്റഴിച്ച ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയാറല്ലെന്നും അവർ വൃക്തമാക്കി ഫ്ളാറ്റുകളുടെ നികുതി അടയ്ക്കുന്നത് ഉടമകൾ തന്നെയാണെന്നും മറുപടിയിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ ബിൽഡർമാർ എന്ന നിലയിൽ മുനിസിപ്പാ ലിറ്റി നോട്ടീസ് അയച്ചത് നിയമവിധേയമായല്ലെന്നും അവർ അറി യിച്ചു ഫ്ളാറ്റുകളിൽ കഴിയുന്നവർക്ക് താമസം മാറ്റാൻ ഇന്ന് വൈകിട്ടു വരെയാണ് സമയപരിധി ഒഴിപ്പിക്കലിനെതിരെ നാളെ ഹൈക്കോ ടതിയെ സമീപിക്കാനാണ് ഫ്ളാറ്റ് ഉടമകളുടെ തീരുമാനം ജാഗ്രതയുടെയും നിശ്ചയ ദാർഢ്യത്തിന്റെയും പര്യായമാണ് എഞ്ചി നിയർമാരെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും അഭിപ്രായപ്പെട്ടു എഞ്ചിനിയേഴ്സ് ദിന സന്ദേശത്തിലാണ് ഇരുനേതാക്കളും രാജ്യത്തെ എഞ്ചിനിയർമാർക്ക് ആശംസകൾ നേർന്നത് പ്രമുഖ സിവിൽ എഞ്ചിനിയർ എം വിശ്വേശ്വരയ്യരുടെ ജന്മദിനമാണ് എഞ്ചിനിയേഴ്സ് ദിനമായി ആചരിക്കുന്നത് അണക്കെട്ടുകളിലൂടെ രാജ്യത്തിന്റെ ജലസമ്പത്ത് കാത്തു സൂക്ഷിക്കുകയെന്ന കാഴ്ചപ്പാട് ആദ്യമായി നൽകിയത് വിശ്വേശ്വരയ്യായിരുന്നുവെന്ന് ഉപരാഷ്ട്ര പതി ട്വിറ്ററിൽ കുറിച്ചു എഞ്ചിനിയർമാരുടെ നൂതനമായ കാഴ്ചപ്പാടില്ലാതെ രാജ്യത്തിന്റെ വികസനവും പുരോഗതിയും അപൂർണമായിരിക്കുമെന്ന് പ്രധാന മന്ത്രി ട്വീറ്റ് ചെയ്തു അവരുടെ മഹത്തായ സംഭാവനകൾക്ക് രാജ്യം എന്നും കടപ്പെട്ടിരിക്കയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

സർദാർ സരോവർ ഡാം പരമാ വധി സംഭരണ ശേഷിയിലെത്തുന്നതിന്റെ ഭാഗമായാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ച് നമാമിദേവി നർമ്മദാ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അവിടെ പ്രാർത്ഥ നയിലും സംബന്ധിക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അഹ മ്മദാബാദിൽ അറിയിച്ചു അടുത്ത ജനുവരി മുതൽ ജിഎസ്ടി രജിസ്ട്രേഷനു വ്യാപാരികൾ ക്ക് ആധാർ നിർബന്ധമാക്കും

മഹരാഷ്ട്രയിലും ഛത്തീസ്ഗഢിലും പൊലിസും സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു മഹാരാഷ്ട്രയിലെ ഗദ്ചിരോളിയിലെ നർകാസ വനമേഖലയിൽ ഇന്ന് രാവിലെയാണ് നക്സലുകൾ പൊലിസുമായി ഏറ്റുമുട്ടിയത്

പ്രത്യാക്രമണത്തിൽ രണ്ടു നക്സ ലേറ്റുകൾ കൊല്ലപ്പെട്ടു ഛത്തിസ്ഗഡിലെ സുക്മയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏ റ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകൾ ഇന്നലെ വൈകീട്ട് കൊല്ലപ്പെ ട്ടിരുന്നു പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളുടെയും പ്രചാരണ ത്തിന്റെ ചുക്കാൻ മുതിർന്ന നേതാക്കൾ ഏറ്റെടുക്കുന്നു

ഐ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മണ്ഡലത്തിലുണ്ടാവും

എഫ് സ്ഥാനാർത്ഥി മാണി

കാപ്പനുവേണ്ടി മന്ത്രിമാര ടങ്ങുന്ന സംഘം പാലായിൽ ക്യാമ്പ് ചെയ്ത് വീടുകൾ കയറി പ്രച രണം നടത്തുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേ ന്ദ്രൻ ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തുന്നുണ്ട്

എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ എൻ

എ നേതാക്കളുടെ സംഘവും മണ്ഡല ത്തിൽ ക്യാംപ് ചെയ്യുന്നുണ്ട് പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ

എക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് ബി

എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു നിലനിൽക്കാത്ത ചെക്കിന്റെ പേരിലാണ് നാസിൽഅബ്ദുല്ല തന്നെ കേസിൽപെടുത്തിയതെന്നും വൃക്തിപര മായ ആവശ്യത്തിനാണ് ദുബായിൽ പോയതെന്നും അദ്ദേഹം എറണാകുളത്ത് വൃക്തമാക്കി സംഭവത്തിൽ സിപിഐഎമ്മിന് പങ്കി ല്ലെന്നും അദ്ദേഹം പറഞ്ഞു

എ ഇ അജ്മാൻ കോടതി ചെക്ക് കേസ് തള്ളിയതിനെ തുടർന്ന് ജയിൽമോചിതനായി കൊച്ചിയിൽ തിരിച്ചെത്തിയ തുഷാർ വെള്ളാ പ്പള്ളിക്ക് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എസ്

പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പേരിൽ ട്രസ്റ്റും സ്ഥാപനങ്ങളും തുടങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെ

കണ്ണൂർ ചെറുപുഴയിൽ കരാറുകാരൻ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ തന്റെ കുടുംബത്തിന് പങ്കില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംഭവ ത്തിൽ ഗവൺമെന്റ് ഉചിതമായ അന്വേഷണം നടത്തണം പാർട്ടി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കരുണാകരന്റെ പേരിൽ തുടങ്ങിയ സ്ഥാപനം കാരണം ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതിൽ ഖേദ മുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം അൽപസമ യത്തിനകം തുടങ്ങും ആറന്മുള പാർത്ഥ സാരഥിയുടെ പ്രതിഷ്ഠാ ദിന സ്മരണയിൽ നടക്കുന്ന വള്ളംകളി മന്ത്രി കടകംപള്ളി സുരേ ന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

ചടങ്ങിൽ മന്ത്രി കെ രാജു കവി രമേശൻ നായർക്ക് രാമപുരത്ത് വാര്യർ അവാർഡ് സമ്മാനി ക്കും

വൈകിട്ട് ഏഴിനാണ് മത്സരം വെസ്റ്റിൻഡീസിനെ തകർത്ത് ആത്മവിശ്വാസത്തോടെ യാണ് ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത് ദക്ഷിണാഫ്രിക്കയെ സ്വന്തം മണ്ണിൽ തോൽപ്പിക്കാൻ ഇതുവരെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല

മേള ഇന്ന് സമാപിക്കും കോഴിക്കോട്ട് സംസ്ഥാന ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് മത്സരം ഇന്ന് സമാപിക്കും

ഓണാവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളും ഗവൺമെന്റ് ഓഫീസുകളും നാളെ തുറക്കും

ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന പുലിക്കളിയിൽ അയ്യന്തോൾ ദേശം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കോട്ടപ്പുറം സെന്ററിനാണ് രണ്ടാംസ്ഥാനം കോട്ടപ്പുറം ദേശം വിയ്യൂർ ദേശം വിയ്യൂർ സെന്റർ എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു കോഴിക്കോട് ഡി

സിയുടെ മലബാർ ജലോത്സവം ഇന്ന് അത്തോളിയിലെ കുനിയിൽകടവിൽ നടക്കും വള്ളംകളി മത്സരം ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കും

വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

കണ്ണൂരിലെ പ്രമുഖ തെയ്യം കലാകാരനും പാപ്പിനിശ്ശേരി പഞ്ചായ ത്ത് മുൻ പ്രസിഡന്റും സി

എം നേതാവുമായ ഇ

കു ഞ്ഞിരാമൻ അന്തരിച്ചു

സംസ്കാരം വൈകീട്ട് കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കും

പ്രളയത്തെത്തുടർന്ന് സ്തംഭിച്ചിരുന്ന വിനോദ സഞ്ചാ രമേഖല വ്യാഴാഴ്ച മുതലാണ് സജീവമായത് ഇടുക്കിയിൽ പെരിയാറിന്റെ തീരമേഖലകളായ തട്ടേക്കാട് പാല മറ്റം ഇഞ്ചതൊട്ടി എന്നിവിടങ്ങളിൽ നാവികസേനയുടെ പരിശീലന പരിപാടി തുടങ്ങി